സംസ്ഥാനതല വാക്സിൻ വിതരണം മന്ത്രി കെ

ശ്ശെലജ തിരുവനന്ത പുരത്ത് ഉദ്ഘാടനം ചെയ്തു

ഇന്ത്യയിൽനിന്ന് പോളിയോ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യ ത്തോടെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു

രാജ്യവ്യാപകമായി തുള്ളിമരുന്നുവിതരണ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്

ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ ഏതാനും കുഞ്ഞു ങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകി ദേശീയ പൾസ് പോളിയോ പരിപാടിയ്ക്ക് തുടക്കമിട്ടു സംസ്ഥാനതല തുള്ളിമരുന്ന് വിതരണോദ്ഘാടനം മന്ത്രി കെ

ശൈലജ തിരു വനന്തപുരത്ത് നിർവ്വഹിച്ചു

ഇതിനുപുറമെ സഞ്ചരിക്കുന്ന ബൂത്തു കളും ട്രാൻസിറ്റ് ബൂത്തുകളും പ്രവർത്തിക്കുന്നു ഇന്ന് മരുന്ന് ലഭിക്കാത്ത കുട്ടി കൾക്കായി നാളെയും മറ്റന്നാളും വീടുകളിലെത്തി ആരോഗൃ പ്രവർത്തകർ തുള്ളിമ രുന്ന് നൽകും പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവ്വഹിച്ചു കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ വി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഗവൺമെന്റിനോട് വിശ ദീകരണം തേടി ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണമെന്നാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടത് പൌരത്വനിയമഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയതിൽ ഗവർണ്ണർ അതൃപ്തി അറിയിച്ചിരുന്നു ഗവർണ്ണർ എന്ന നിലയിൽ ഗവൺമെന്റ് ഇക്കാര്യം നേരത്തെ അറിയിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചട്ടമനുസരിച്ച് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ വിഷയങ്ങൾ ഗവർണ്ണറെ അറിയിക്കണമെന്ന് രാജ്ഭവൻ നൽകിയ കത്തിൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു പൌരത്വ് നിയമഭേദഗതിക്കെതിരായ പ്രതിഷേധം ആർക്കും ഗുണകരമല്ലെന്ന് മിസ്സോറാം ഗവർണ്ണർ പി

ശ്രീധ രൻപിള്ള തിരു വല്ലയിൽ പറഞ്ഞു ഒരാളെപോലും ഇത് ദോഷമായി ബാധിക്കില്ലെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു കേരള ലിറ്ററേച്ചൂർ ഫെസ്റ്റിവൽ സംഘാടകരുടെ ആവശ്യപ്രകാരം കോഴിക്കോട് ഗവർണ്ണർ പങ്കെടുക്കേണ്ടിയിരുന്ന ചടങ്ങ് മാറ്റിവെച്ചതായി ഗവർണ്ണറുടെ ഓഫീസ് സ്ഥിരീ കരിച്ചു സുരക്ഷാകാരണങ്ങളുടെ പേരിലാണ് ചടങ്ങ് മാറ്റിയത് മറ്റൊരു ദിവസം ഗവർണ്ണർ പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്

വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട അവ രുടെ ചോദൃങ്ങൾക്ക് മറുപടി നൽകും പരീക്ഷാ ഭീതി എങ്ങനെ ഒഴിവാക്കാനാവു മെന്നും പ്രധാനമന്ത്രി വിശദീകരിക്കും കോഴിക്കോട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വൈകീട്ട് സമാപിക്കും

കെ കൃഷ്ണ മേനോന്റെ ജീവിതത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ച യിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ ജയറാംരമേശ് ഡോ ശശിതരൂർ തുടങ്ങിയവർ സംബന്ധിക്കും മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും എഴുത്തുകാർക്ക് പുറമെ വിദേശ എഴുത്തുകാരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്നു ദിവസത്തെ സി

ഐ എം കേന്ദ്രകമ്മറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും പോളിറ്റ്ബ്യൂറോ റിപ്പോർട്ടിനെക്കുറിച്ച് യോഗം ചർച്ചചെയ്തു വൈകീട്ട് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേതാക്കൾ പങ്കെടുക്കും കേന്ദ്രമന്ത്രിമാരുടെ ജമ്മു കശ്മീർ സന്ദർശനം തുടരുന്നു ഒൻപത് കേന്ദ്രമന്ത്രിമാ രാണ് രണ്ട് കേന്ദ്രഭണപ്രദേശങ്ങൾ സന്ദർശിച്ച് വികസന പദ്ധതികളെക്കുറിച്ച് ജനങ്ങ ളുടെ അഭിപ്രായം തേടുന്നത് വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് കേന്ദ്രമ ന്ത്രിമാരുടെ ഏഴുദിവസത്തെ ജമ്മുകശ്മീർ സന്ദർശനം

കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലെത്തിക്കുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കശ്മീരിലെത്തിയതായിരുന്നു അദ്ദേഹം വിവിധ വികസന പദ്ധതികൾ ജമ്മുകശ്മീരിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ഡൽഹി നിർഭയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയുടെ അപ്പീലിൽ സുപ്രീം കോടതി നാളെ വാദംകേൾക്കും സംഭവസമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന പ്രതി പവൻകുമാർ ഗുപ്തയുടെ അപ്പീലാണ് കോടതി പരിഗണിക്കുന്നത് പ്രതിയുടെ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു ഇന്ത്യാ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ബംഗളൂരുവിൽ അൽപ സമയത്തിനകം ആരംഭിക്കും

ഇന്ന് ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം

ആകാശവാണിയുടെ ദേശീയ ശൃംഖലയിലും എഫ്

റെയിൻബോ ശൃംഖലകളിലും കളിയുടെ തത്സമയ ദൃക്സാക്ഷി വിവരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും കേൾക്കാം

ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയാണ് എതിരാളി

ഫുട്ബാളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജാംഷഡ്പൂർ എഫ്

തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ടോസ് നേടിയ കേരളം രാജസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

കേരളത്തിൽ തദ്ദേശതെരഞ്ഞെടുപ്പിന് നിലവിലെ വോട്ടർ പട്ടിക പുതുക്കാൻ കരട് നാളെ പ്രസിദ്ധീകരിക്കും

ഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തി ന്റേയും ഗ്രന്ഥശാലയുടേയും എക്സിക്യുട്ടീവ് കൌൺസിൽ അധ്യക്ഷനായി പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപ്പേന്ദ്ര മിശ്രയെ നിയമിച്ചു ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം മ്യൂസിയത്തിന്റെ എക്സിക്യൂട്ടീവ് കൌൺസിൽ പുനഃസംഘടിപ്പിച്ചു പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷൻ ഡോ

പുനഃസംഘടിപ്പിച്ച എക ്സിക്യൂട്ടീവ് കൌൺസിലിൽ രാജ്യസഭാംഗങ്ങളായ വിനയ് സഹസ്ര ബുധെ സ്വാപൻദാസ് ഗുപ്ത എന്നിവരും ഉൾപ്പെടുന്നു എട്ടംഗ സമിതിയിൽ സാംസ്കാരിക മന്ത്രാലയത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായും നിയമിച്ചിട്ടുണ്ട് വൈദ്യുതി ഉപകരണങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിൽ വൃവസായമേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു പല തീപിടി ത്തങ്ങൾക്കും കാരണം വൈദ്യുതി ഉപകരണങ്ങളുടെ മോശം നിലവാരവും വയറിം ഗിലെ പിഴവുകളുമാണെന്ന് അദ്ദേഹം ഗ്രേറ്റർ നോയിഡയിൽ പറഞ്ഞു

വൈദ്യുതി ഉപകരണമേഖല ലോകത്തെ സാങ്കേ തിക വിദ്യയും പുതിയ കണ്ടുപിടുത്തങ്ങളും ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ വേദിയായി മാറണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ജലവിതരണ പദ്ധതികളുടെ കാര്യക്ഷമതയില്ലായ്മയും അന്തരീക്ഷത്തിൽ വർദ്ധി ച്ചുവരുന്ന എയ്റോസോൾ ഘടകങ്ങളുടെ സാന്നിധ്യവും കേരളത്തിൽ പ്രളയ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫ

കോഴിക്കോട്ട് കേരള ലിറ്ററച്ചർ ഫെസ്റ്റിവല്ലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് കൂറ്റൻ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് ഗുരുതര പരിസ്ഥിതി പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഭരണകൂടത്തിന്റെ അശ്രദ്ധ കുറ്റകരമാണെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം മറ്റന്നാൾ കോഴിക്കോട്ട് ആരംഭിക്കും

മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ പൂലർച്ചെ ആറിന് അടയ്ക്കും മകരവിളക്ക് കാലത്തെ തീർത്ഥാടനത്തിനു സമാപനം കുറിച്ച് നാളെ മാളികപ്പുറത്ത് ഗുരുതി നടക്കും

വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് മന്ത്രി വി

സുനിൽകുമാർ തറക്കല്ലിട്ടു ഇന്ത്യയിൽ ആദ്യമായാണ് ജയിലിനോടനുബന്ധിച്ച് പെട്രോൾപമ്പ് തുറക്കുന്നത്

മിൽമ തിരുവന്തപുരം മേഖലാ ഗ്രാമോത്സവം കൊല്ലം ആനയടിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം